കേരളത്തിലെ ആറ് ജില്ലകളിൽ ഇന്നും പൃകൽ താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയു ണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൈത്തറി മേഖലയിലെ ആറ് മാസത്തെ കൂലി കൂടിശ്ശിക അടു ത്തയാഴ്ച്ച നൽകും സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം രാവിലെ മന്ത്രി ഡോ തോമസ് ഐസക് വൈത്തിരിയിൽ ഉദ്ഘാടനം ചെയ്യും

ങ്ങ ൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം

മണി തിരുവനന്തപു രത്ത് അന്തരിച്ചു കേരള കൌമുദിയുടെ മുൻ പത്രാധിപരും കലാ കൌമുദിയുടെ സ്ഥാപക പത്രാധിപരുമായിരുന്നു അദ്ദേഹം

സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വദേശാഭിമാനി കേസരി പുരസ്കാ രമടക്കം ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്

സുകുമാരന്റെ മൂത്ത മകനായി അദ്ദേഹം ജനിച്ചത് കേരള കൌമു ദിയിലൂടെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നു ഇന്ത്യൻ ന്യൂസ്പേപ്പർ സൊസൈറ്റി അംഗമായും ഇന്ത്യാ ന്യൂസ്പേപ്പർ എഡി റ്റേഴ്സ് കോൺഫറൻസ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ആറ് ജില്ലകളിൽ ഇന്നും പകൽ താപനില രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ ഇടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് കണ്ണൂർ തൃശൂർ കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ പകൽ ചൂടിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു

കൈത്തറി മേഖലയിലെ കഴിഞ്ഞ ആറ് മാസത്തെ കൂലിക്കുടി ശിക അടുത്തയാഴ്ച്ച നൽകാൻ നടപടിയെടുത്തതായി മന്ത്രി ഇ

ജ യരാജൻ അറിയിച്ചു കോഴിക്കോട് ജില്ലാ കൈത്തറി നെയ്ത്ത് ഉത്സവം വടകര ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കൈത്തറിക്ക് ലോക ബ്രാന്റ് എന്ന ലക്ഷ്യത്തോടെ തിരുവനന്ത പുരത്ത് രാജ്യാന്തര നിലവാരത്തിൽ കൈത്തറി ജൈവ വസ്ത്ര ഷോറൂം തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു

നല്ല കൈത്തറി തൊഴിലാളി കൾക്കും സംഘങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തും കൈത്തറി ഗ്രാമം തുടങ്ങാൻ നടപടിയായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

പുതുതായി ആരേയും ആശുപത്രികളിലെ ഐസൊലേഷൻ വാർഡിൽ ആക്കിയിട്ടില്ല

ഇവരിലാർക്കും രോഗലക്ഷണമില്ല

ആർക്കും രോഗ്നബാധ ഇല്ലെന്ന് പരിശോധനകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്

എടപ്പാൾ മേൽപ്പാലത്തിന്റെ നിർമ്മാണം മെയ് അവസാന വാര ്പൂർത്തീകരിക്കണമെന്ന് ത്താടെ മന്തി ഡോ

നിർമ്മാണത്തിലെ കാലതാ മസം ഒഴിവാക്കണമെന്നും സമാന്തര റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗൃമാക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശൃ പ്പെട്ടു നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ വിളിച്ചു ചേർത്ത യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും അമി തജല ചൂഷണം കാലാവസ്ഥാ വൃതിയാനം എന്നിവ മൂലം കടലോര മേഖലയിലെ ഭൂഗർഭ ജല നിരപ്പ് നേരിടുന്ന പ്രശ്നങ്ങളും ദോഷഫ ലങ്ങളും ചർച്ച ചെയ്യും മുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മിസോറാം ഗവർണർ പി

ശ്രീ ധ രൻപി ള്ളക്ക് രാജസ്ഥാനിലെ ശ്രീ ജഗതിപ്രസാദ് ജെ

യൂണിവേഴ്സിറ്റി ഓണററി ഡീലിറ്റ് ബിരുദം നൽകും

എട്ട് ഓഫീസ് മന്ദിരങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കായിക രംഗത്തെ ലോറസ് പുരസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതി ഹാസം സച്ചിൻ ടെൻണ്ടുൽക്കർക്ക് ലഭിച്ചു

ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരാണ് സച്ചിൻ ടെൻണ്ടുൽക്കർ സ്പോർട്സ് മെൻ ഓഫ് ദി ഇയർ അവാർഡ് ഫുട്ബോൾ താരം അർജന്റീനയുടെ ലയണൽ മെസിയും ബ്രിട്ടന്റെ ലൂയിസ് ഹാമിൽട്ടണും പങ്കിട്ടു യുഎസ് ജിംനാസ്റ്റിക് താരം ചിമോണി ബെയി ൽസിനാണ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം

രാവിലെ മന്ത്രി ഇ

ജയരാജൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശ വാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം വയനാട് വൈത്തിരി റിസോർട്ടിൽ രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

ഇടുക്കി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് വേനപ്പാറയിൽ മന്ത്രി എം

മണി തറക്കല്ലിട്ടു

നെടുങ്കണ്ടത്ത് എംജി സർവ്വകലാശാലയുടെ സാറ്റ്ളൈറ്റ് സെന്ററും മന്ത്രി എം

ജീവനി പദ്ധതിയുടെ കണ്ണൂർ ജില്ലാതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ മുഴുവൻ പ്രാഥമികാരോഗൃ കേന്ദ്രങ്ങളേയും കുടുംബാരോഗൃ കേന്ദ്രങ്ങളാക്കി ഉയർത്തു മെന്ന് മന്ത്രി എ

കേരള ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ കലോത്സവം കോഴിക്കോട് മെഡിക്കൽ കോളജിൽ തുടങ്ങി

അതി ജീവനത്തിന്റെ വഴികൾ നിപ മുതൽ കൊറോണ വരെ എന്ന വിഷയ ത്തിൽ പാനൽ ചർച്ചയും കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പി ച്ചിട്ടുണ്ട് വൈകീട്ട് മന്ത്രി കെ

ശൈലജ കലോത്സവം ഔപചാരി കമായി ഉദ്ഘാടനം ചെയ്യും

രാമകൃഷ്ണൻ അറിയിച്ചു

കോഴിക്കോട് കക്കോടി പടിഞ്ഞാ റ്റുമുറി യുപി സ്കൂളിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുകയാ

സമൂഹത്തിൽ അനാവശൃ ഭയം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാ ക്കാൻ യുഡിഎഫും എൽഡിഎഫും ശ്രമിക്കുകയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

കാസർകോട് പെരിയയിലെ ശരത്ലാലിന്റേയും കൃപേഷി ന്റേയും കൊലയാളികളെ ശിക്ഷിക്കുന്നത് വരെ കോൺഗ്രസ് നിയമ പോരാട്ടം തുടരുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ പറഞ്ഞു

രാജശേഖരൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ഒന്നാം വാർഷിക സ്മരണാഞ്ജലി സംവിധായകൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു